തെരഞ്ഞെടുപ്പ് കമ്മീഷൻയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ

ചെന്നൈയിലെ ടെക് ഫോർ ഓൾ എന്ന സംഘടന സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ അവധിക്കാല ബെഞ്ചാണ് തള്ളിയത് ചീഫ് ജസ്റ്റിസ് രജ്ഞൻ ഗോഗൊയ് അധ്യ ക്ഷനായ ബെഞ്ച് നേരത്തെ ഈ ആവശ്യം തള്ളിക്കളഞ്ഞതാ ണെന്ന് കാണിച്ചാണ് ഹർജി നിരാകരിച്ചത് ചീഫ് ജസ്റ്റിസിന്റെ ഉത്തരവ് മറികടക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി രണ്ടംഗ ബെഞ്ചിന് മുമ്പാകെ എന്തിന് ഇത്തരമൊരു ഹർജിയുമായി വന്നുവെന്ന് ചോദിച്ചു

വോട്ടിങ്ങ് യന്ത്രങ്ങളുടെ വിശ്വാസൃത കാത്തു സൂക്ഷിക്കണ മെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ ഇന്ന് തെര ഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരും കമ്മീഷൻ അംഗം അശോക് ലവാസയുമായി അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യോഗം കമ്മീഷൻ രേഖകളിൽ തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്താത്തതിൽ പ്രതിഷേ ധിച്ച് അശോക് ലവാസ ഈ മാസം നാലു മുതൽ കമ്മീഷൻ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല

തെരഞ്ഞെടുപ്പ് മാതൃക പെരുമാറ്റച്ചട്ട ലംഘനം സംബ ന്ധിച്ച പരാതികൾ സമയബന്ധിതമായും സുതാര്യമായും പക്ഷ പാതരഹിതമായും തീർപ്പാക്കണമെന്നാണ് തന്റെ താത്പര്യമെന്ന് അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു ഒന്നിലധികം പേർ അംഗങ്ങളായ എല്ലാ സമിതികളിലും വ്യത്യസ്ത് അഭിപ്രായ ങ്ങളുണ്ടായാൽ ഉത്തരവിൽ അത് രേഖപ്പെടുത്തുകയാണ് രീതി യെന്നും ആ ആവശ്യമാണ് താൻ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വൃക്തമാക്കി ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു സുപ്രീംകോ ടതിയിലെ പ്രമുഖ അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ മനു അഭിഷേക് സിംഗ്വിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ തിരിമറി സംബ ന്ധിച്ച പരാതി ഇന്നുച്ച കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകു ന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ച ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ എൻ ഡി എ നേതാക്കളു മായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും തെരഞ്ഞെ ടുപ്പ് ഫലം മറ്റന്നാൾ വരാനിരിക്കെ ഗവ രൂപീകരണവുമായി ബന്ധ പ്പെട്ട കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമാകും എൻ ഡി എ നേതാക്കളുമായി ചർച്ച നടത്തും മുമ്പ് ബി ജെ പി ആസ്ഥാ നത്ത് മുതിർന്ന പാർട്ടി നേതാക്കളെയും അദ്ദേഹം കാണും എൻ ഡി എ നേതാക്കാൾക്കായി അമിത് ഷാ അത്താഴവി രുന്നും ഒരുക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുതിർന്ന ബിജെപി നേതാക്കളും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ശിവ സേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ എൽ ജെ പി അധ്യക്ഷൻ രാം വിലാസ് പസ്വാൻ തുടങ്ങിയ നേതാക്കൾ അത്താഴ വിരുന്നിൽ പങ്കെടുക്കും

കണ്ണൂർ ജില്ലയിൽ സിപിഐഎം വൻതോതിൽ കള്ളവോട്ട് ചെയ്തതായി ബി ജെപി ജില്ലാ നേതാക്കൾ കണ്ണൂരിൽ ആരോപി ച്ചു മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മാത്രം ആയിരത്തോളം കള്ള വോട്ട് ചെയ്തതായി തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സെൽ കോ ഓർഡിനേറ്റർ കെ ആർ രഞ്ജിത്തും ജില്ലാ പ്രസിഡണ്ട് പി സത്യപ്രകാശും പറഞ്ഞു

ന്യൂഡൽഹി യിലെ വീർ ഭൂമിയിൽ രാവിലെ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി മുൻ ഉപരാഷ്ട്രപതി ഡോ ഹാമിദ് അൻസാരി മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ് യു പി എ ചെയർപേഴ്സൺ സോണി യാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ആദരാജ്ഞലി അർപ്പിച്ചു രാജീവ് ഗ്യാസിക്ക് ആദരാ ജ്ഞലി അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നർന്ദ്രമോദി ട്വിറ്ററിൽ അറിയിച്ചു രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിന്ത്തോടനുബന്ധിച്ച് കോൺഗ്രസ് രാജ്യത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

കെ പി സി സി ആസ്ഥാനമായ തിരുവനന്തപുരത്തെ ഇന്ദിരാ ഭവനിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ അനു സ്മരണ പരിപാടി സംഘടിപ്പിച്ചു

കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ പ്രസിഡണ്ട് എം എം ഹസൻ തുട ങ്ങിയവർ സംബന്ധിച്ചു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയത് പരിശോധിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു കോഴിക്കോട് ഡി സി സി ഓഡിറ്റോറിയത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുരളീധരൻ ലണ്ടനിൽ പോയത് ഖജനാവിലെ പണം ഉപയോഗിച്ചാണെങ്കിൽ കുടുംബാംഗങ്ങളെ കൂട്ടിയത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു ട ആതുര സേവനത്തിനിടെ നിപ വൈറസ് ബാധയിൽ ജീവൻ വെടിഞ്ഞ നഴ്സ് ലിനിയുടെ വിയോഗത്തിന് ഇന്ന് ഒരു വർഷം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക നഴ്സായി രുന്ന ലിനിയ്ക്ക് നിപ ബാധിതരെ പരിചരിക്കുന്നതിനിടെയാണ് വൈറസ് ബാധിച്ചത് മരണത്തിന് തൊട്ടുമുമ്പുവരെയും ധീരത കൈവെടിയാതിരുന്ന ലിനിയെ ഐക്യരാഷ്ട്രസംഘടന അഭിന ന്ദിച്ചിരുന്നു ലിനിയുടെ പേരിൽ മികച്ച നഴ്സുമാർക്ക് സംസ്ഥാന ഗവ അവാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുടനീളം ഇന്ന് ലിനി അനുസ്മരണം സംഘടിപ്പിക്കും ഇന്നുച്ചക്കു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളെജിലെ മാതൃശിശു സംരക്ഷണ് കേന്ദ്രത്തിൽ സംഘടിപ്പി ക്കുന്ന ലിനി അനുസ്മരണയോഗം പി ക്കെ ശ്രീമതി എം പി ഉദ്ഘാ ടനം ചെയ്യും ലിനിയുടെ സ്മരണാർത്ഥം പയ്യന്നൂർ താലൂക്ക് ആശുപത്രി യിൽ ആരംഭിക്കുന്ന ലിനി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ലൈബ്ര റിയുടെ ഉദ്ഘാടനം ഇന്നുച്ചക്ക് രണ്ടു മണിക്ക് പയ്യന്നൂർ നഗര സഭാ ചെയർമാൻ ശശി വട്ടക്കൊവ്വൽ നിർവഹിക്കും സംസ്ഥാ നത്ത് ആദ്യമായി ആരംഭിക്കുന്ന ആശുപത്രി ലൈബ്രറി കണ്ണൂർ ജില്ലാ കൌൺസിലിന്റെ സഹായത്തോടെ രോഗികളെയും കൂട്ടിരി പ്പുകാരെയും ലക്ഷ്യമിട്ടാണ് തുടങ്ങുന്നത്

വോട്ടെടുപ്പിന് ശേഷം തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇന്ധന വില വർദ്ധി ക്കുന്നത്

അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കാ നായി രൂപം കൊടുത്ത റിസാറ്റ് പതിപ്പുകളിൽ ഏറ്റവും പുതിയ താണ് ഐ എസ് ആർ ഒയുടെ ഈ പുതിയ ഉപഗ്രഹം

തിരുവനന്തപുരത്തെ സ്ഥകാര്യ സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ പഴവങ്ങാടിയിൽ ഓവർ ബ്രിഡ്ജ് റോഡിലെ സ്വകാര്യ വ്യാപാരസ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത് കട പൂർണമായും ക ത്തിനശിച്ചു തീ നിയന്തണ വിധേയമാക്കാനുള്ള ശ്രമ ത്തിലാണ് അഗ്നിശമന സേനാ വിഭാഗവും നാട്ടുകാരും ഒരു ഫയർമാന് പൊള്ളലേറ്റു തീ മറ്റ് കടകളിലേക്ക് പടരാതിരിക്കാൻ ശ്രമിക്കുക യാണെന്നും തിരുവനന്തപുരം മേയർ വി

പ്രശാന്ത് അറിയിച്ചു ഇന്ന് രാവിലെ കട തുറക്കുന്നതിന് തൊട്ടുമുമ്പാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്ത ത്തിന്റെ കാരണം വൃക്തമല്ല അപകടസാധൃത കണക്കിലെടുത്ത് സ്ഥലത്തു നിന്ന് ആളുകളെ ഒഴി പ്പിക്കുന്നത് തുടരുകയാണ്

വീണ്ടും ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു റോഡ് വികസനം നടപ്പാക്കുന്നതിൽ ഉത്തരവാദപ്പെട്ടവർ വൻ പരാജയമാണെന്നും മന്ത്രിമാരും എം

എയും പലതവണ നൽകിയ ഉറപ്പുകളോ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളോ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നും ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി കോഴിക്കോട്ട് ചേർന്ന യോഗത്തിൽ പ്രസിഡണ്ട് ഡോ

എസ് നാരായണൻ അദ്ധ്യക്ഷനായിരുന്നു ദേശീയ യൂത്ത് ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ത്തിന് ഇന്ന് ഇരട്ട ഫൈനൽ ഇന്നത്തെ ഹരിയാന കർണാടക മത്സര വിജയികളെ ആൺകുട്ടികളും രാജസ്ഥാൻ തമിഴ്നാട് മത്സരത്തിലെ വിജയികളെ പെൺകുട്ടികളും നേരിടും ഇന്നലെ കോയമ്പത്തൂരിൽ സെമിയിൽ ആൺകുട്ടികൾ രാജസ്ഥാനേയും പെൺകുട്ടികൾ പഞ്ചാബിനേയും കീഴടക്കി കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ മഹല്ല് കമ്മിറ്റിക്ക് പൊലീസ് നിർദ്ദേശം നൽകി

ശ്രീലങ്കയിലെ സ്ഫോടനവുമായ ബന്ധപ്പെട്ട് പാലക്കാട്ട് അറസ്റ്റിലായ റിയാസ് അബൂബക്കറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ചേര മാൻ പള്ളിയുടെ സുരക്ഷ ശക്തമാക്കാൻ പൊലീസ് നിർദേശം നൽകിയത്

എക്സൈസ് വകുപ്പിൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ വൊക്കേഷണൽ ഹയർ സെസന്ററി വകുപ്പിൽ ഇൻസ്ട്രക്ടർ തസ്തികകളിലേക്കാണ് പുനപരീക്ഷ

ഇന്നലെ അധ്യാപക സംഘടനകളുമായി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി നടത്തിയ ചർച്ചയിലൊധാരണ പ്രകാരമാണ് യോഗം വടകരയിലെ കക്ഷിരഹിത സ്ഥാനാർത്ഥി സി ഒ ടി നസീറിനെ വെട്ടിപരിക്കേൽപ്പിച്ച സംഭവത്തിൽ നിഷ്പക്ഷ ആന്വേഷണം വേണമെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയ രാജൻ ആവശ്യപ്പെട്ടു കുറ്റക്കാർ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടു വരണമെന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപ ത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നസീറിനെ സന്ദർശിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആക്രമണത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും ജയരാജൻ വ്യക്തമാക്കി